എൻസിപി ഇന്ന് നിലപാട് അറിയിക്കും

അയോദ്ധ്യ തർക്ക ഭൂമിക്കേസിൽ സുപ്രീം കോടതി വിധി നിരാ ശാജനകമാണെന്ന് മുസ്ലീം ലീഗ് വിലയിരുത്തി യാക്കോബായ വിശ്വാസികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് പ്രതിഷേധ മതിൽ തീർക്കും

നിയമസഭയിലെ മൂന്നാമത്തെ വലിയക ക്ഷിയെന്ന നിലയിൽ ഗവൺമെന്റ് രൂപീകരണം സംബന്ധിച്ച തീരു മാനം അറിയിക്കാൻ എൻസിപിയെ ഗവർണർ ഭഗത്സിങ്ങ് കാഷാരി ക്ഷണിച്ചു ഇന്ന് രാത്രി എട്ടര വരെ ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശം ഉന്നയിക്കാൻ എൻസിപിക്ക് സമയം നൽകിയിട്ടുണ്ട് കോൺഗ്രസുമായി ചർച്ച നടത്തിയ ശേഷം തീരുമാനം ഇന്നറിയി ക്കാമെന്ന് എൻസിപി നേതാക്കൾ ഗവർണറെ അറിയിച്ചതായി പിടിഐ റിപ്പോർട്ട് ചെയ്തു ശിവസേനക്ക് ഇന്നലെ ഭൂരിപക്ഷം തെളിയിക്കുന്ന കത്ത് ഹാജ രാ ക്കാൻ ക ഴി യാ ത്ത സാഹ്ച ര്യ ത്തി ലാണ് എൻസിപിയെ ഗവർണർ ക്ഷണിച്ചത് ഗവൺമെന്റ് രൂപീകരണത്തിന് കൂടുതൽ സമയം വേണമെന്ന ശിവസേനയുടെ അഭ്യർത്ഥന ഗവർണർ തള്ളുകയായിരുന്നു ഗവൺമെന്റ് രൂപീകരിക്കാൻ തയാ റാണെന്ന് ശിവസേനാ നേതാക്കളായ ആദിത്യ താക്കറെയും ഏക നാഥ് ഷിൻഡേയും ഗവർണറോട് പറഞ്ഞു എന്നാൽ പിന്തുണക്കുന്ന കക്ഷികളുടെ കത്ത് ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല

കെഎപി നാലാം ബെറ്റാലിയൻ കാസർകോട് യൂണിറ്റിന്റെ പരീക്ഷയിലെ ക്രമക്കേട് സംബന്ധിച്ച അന്വേഷണത്തെ തുടർന്നാണ് നിയമനം വൈകിയത് കേസിലെ പ്രതികളായ ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കിയാണ് നിയമനം സംസ്ഥാനത്ത് പബ്ബുകൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് ഗൌരവ മായി പരിശോധിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നാം മുന്നോട്ട് പ്രതിവാര ടെലിവിഷൻ സംവാദ പരിപാടിയി ലാണ് മുഖ്യമന്ത്രി നിലപാട് അറിയിച്ചത് രാത്രി വൈകിയും പ്രവർത്തി ക്കേണ്ട ഐടി ഉദ്യോഗസ്ഥരടക്കം ജീവനക്കാർക്ക് ഉല്ലാസ സൌകര്യ മില്ലെന്ന പരാതിയുടെ സാഹചരൃത്തിലാണ് പബ്ബുകൾ പരിഗണിക്കു ന്നതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു

സൌരോർജ്ജ വൈദ്യുതി മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സംസ്ഥാനത്തിന് കഴിയും ഈ രംഗത്ത് അനർട്ടിന് മികവ് കാണിക്കാനാകുമെന്നും ഏജൻസിയുടെ തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് തയാറാക്കി വരികയാ ണെന്നും അദ്ദേഹം പറഞ്ഞു

കേരളത്തിൽ നടപ്പിലാക്കുന്ന വികേന്ദ്രീകൃത മാലിന്യ സംസ്ക്ക രണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വച്ച് സർവ്വേക്ഷൺ പുരസ്കാരം ലഭിച്ചു കേന്ദ്ര ജലശക്തിമന്ത്രാലയമാണ് അവാർഡ് ഏർപ്പെടുത്തിയത് ഹരിത കേരളാ മിഷൻ ശുചിത്വ മിഷൻ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവ നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ മുൻനിർത്തി യാണ് പുരസ്കാരം

അയോദ്ധ്യ തർക്കഭൂമി ്രകേസിൽ സുപ്രീം കോടതി വിധി നിരാ ശാജനകമാണെന്ന് മുസ്ത്രീം ലീഗ് വിലയിരുത്തി രാജ്യത്തെ മുഴുവൻ മുസ്ലീം സംഘടനകളുമായും മതേതര രാഷ്ട്രീയ പാർട്ടികളുമായും വിശദമായ ചർച്ച നടത്തി ഭാവി നടപടികൾ തീരുമാനിക്കുമെന്ന് ലീഗ് നേതാക്കൾ പാണക്കാട്ട് അറിയിച്ചു

ഖാദർ മൊയ്തീന്റെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചു പാണക്കാട്ട് ചേർന്ന പാർട്ടി ദേശീയ സെക്രട്ടേറിയറ്റ് അംഗ ങ്ങളുടേയും പോഷക സംഘടനാ നേതാക്കളുടേയും യോഗത്തിലാണ് തീരുമാനം

സംസ്ഥാനത്തെ പ്രധാനകേന്ദ്ര ങ്ങളിൽ പ്രതിഷേധ വിളംബരം നടത്താൻ പോപ്പലൂർ ഫ്രണ്ട് ആഹ്വാനം നൽകിയിരുന്നു

ആലപ്പുഴ മുനിസിപ്പാലിറ്റി യിലും എട്ട് ഗ്രാമപഞ്ചായത്തുകളിലും പൈപ്പ്പൊട്ടൽ മൂലം ജലവി തരണം തടസ്സപ്പെട്ടിരിക്കുകയാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ പൈപ്പ്ലൈനിലൂടെ ഇന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ജലവിതരണം ആരംഭിച്ചേക്കും മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിയും ജി സുധാകരനും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം ഉണ്ടായ ത് യാക്കോബായ സഭയോട് നീതി നിഷേധവും മനുഷ്യാവകാശ ലംഘനവും നടത്തുകയാണെന്നാരോപിച്ച് സഭാ വിശ്വാസികൾ സെക്ര ട്ടേറിയറ്റിന് മുന്നിൽ ഉച്ച കഴിഞ്ഞ് പ്രതിഷേധ മതിൽ തീർക്കും തിരു വനന്തപുരം സെന്റ് പീറ്റേഴ്സ് സിറിയൻ സിംഹാസന കത്തീഡ്രലിൽ നിന്നും രണ്ട് മണിയോടെ പ്രതിഷേധ ജാഥ ആരംഭിക്കും അതിനിടെ യാക്കോബായ വിശ്വാസികൾക്ക് പള്ളിസെമിത്തേരി യിൽ മൃതദേഹം സംസ്കരിക്കാൻ ക്ഴിയാത്തിനെ കുറിച്ച് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഗവൺമെന്റിൽ നിന്ന് അടി യന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ദേശീയ കമ്മീഷന്റെ നിർദേശ പ്രകാ രമാണ് നടപടി പറവൂരിൽ സംസ്ഥാന ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകൂട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും പെൺകൂട്ടികളിൽ പത്തനംതിട്ടയും ജേതാക്കളായി ഫൈനലിൽ എറണാകുളത്തെ തോൽപ്പിച്ചാണ് കോഴിക്കോടിന്റെ വിജയം പെൺകുട്ടികളുടെ വിഭാ ഗത്തിൽ കണ്ണൂരിനെയാണ് പത്തനംതിട്ട പരാജയപ്പെടുത്തിയത് കാലിക്കറ്റ് സർവ്വകലാശാലാ സ്റ്റേഡിയത്തിൽ അന്തർ സർവ്വക ലാശാല വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിലെ പ്രീക്വാർട്ടർ മത്സ രങ്ങൾ ഇന്ന് നടക്കും രാവിലെ കേരള സർവ്വകലാശാല തിരുച്ചിറ പ്പള്ളി ഭാരതിദാസൻ സർവ്വകലാശാലയെ നേരിടും

ഇന്ന് മൂന്നാം മത്സരത്തിൽ കേരളം മണി പ്പൂരിനെ നേരിടും തൃശൂരിലെ ചേതന കലാപഠന ശാഖകളുടെ രജത ജൂബിലി ആഘോഷം നാളെ ആരംഭിക്കും മൂന്ന് ദിവസം തൃശൂർ റീജിയണൽ തിയറ്ററിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ചിയ്യാരത്തെ ചേതന കോളജ് ഓഫ് മീഡിയ ആന്റ് പെർഫോമിങ്ങ് ആർട്സ് ഉൾപ്പെടെ ഏഴ് ശാഖകളാണ് സിഎംഐ ദേവമാതാ പ്രൊവിൻഷ്യ ലിന് കീഴിൽ പ്രവർത്തിക്കുന്നത് ഏത് സമയവും ആരും അക്രമിക്കാം എന്ന ഭീതിയോടെയാണ് ഓരോ സ്ത്രീയും കഴിയുന്നതെന്ന് വനിതാ കമ്മീഷൻ ചെയർപേ ഴ്സൺ എം

ജോസഫൈൻ പറഞ്ഞു കോഴിക്കോട്ട് കമ്മീഷൻ സംഘടിപ്പിച്ച വർത്തമാന കാലവും സ്ത്രീ സ്മൂഹവും സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ

നിർദ്ദിഷ്ട സി ഫോറത്തിൽ അനുബന്ധ രേഖ കൾ സഹിതമാണ് അപേക്ഷിക്കേണ്ടത്

കോഴിക്കോട് എലിയറമല സംരക്ഷണ സമിതി വൈസ് ചെയർമാൻ കെ

ഷാജിയെ വധിക്കാൻ ശ്രമിച്ചവരെ പിടികൂടിയി ല്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയരുമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

കോഴിക്കോട്ട് ബിജെപിയുടെ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

കണ്ണൂരിൽ സമാപിച്ച മൂന്നാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേളയിൽ ഇടുക്കി അടിമാലി ഹൈസ്കൂൾ ജേതാക്കളായി വടകര ടെക്നിക്കൽ ഹൈസ്കൂൾ രണ്ടാം സ്ഥാനവും തൃശൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ മൂന്നാം സ്ഥാനവും നേടി പത്ത് വർഷം സേവനം പൂർത്തിയാക്കിയ കശുവണ്ടി തൊഴിലാ ളികൾക്ക് ഇപിഎഫ് പെൻഷൻ അനുവദിക്കാൻ തീരുമാനമായതായി എൻ

പ്രേമചന്ദ്രൻ എം പി കൊല്ലത്ത് അറിയിച്ചു കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇപിഎഫ് അദാലത്തിൽ സംസാരിക്കു കയായിരുന്നു അദ്ദേഹം

വയനാട് കുറിച്യർ മലയിൽ പീവീസ് ഗ്രൂപ്പ് എസ്റ്റേറ്റ് തൊഴിലാളി കൾ തോട്ടഭൂമി കയ്യേറി കുടിൽകെട്ടി സമരം തുടങ്ങി മൂന്നര മാസ ത്തോളമായി തൊഴിൽ നൽകാത്തതൽ പ്രതിഷേധിച്ചാണ് സമരം ഇടുക്കി കുരിശുപാറ തോട്ടിക്കാട്ടിൽ ഇന്നലെ രാത്രി പിക്കപ്പ് വാൻ തോട്ടിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു തോട്ടിക്കാട് സ്വദേശി മനുവാണ് മരിച്ചത്

റിനു അനസ് റാവുത്തരെയാണ് ശിക്ഷിച്ചത് ചൈനീസ് നിർമ്മിത സാറ്റ്ലൈറ്റ് സുരക്ഷാ ഉപകരണം ഘടിപ്പിച്ച ബോട്ടുടമകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മുന്നറിയിപ്പ് നൽകി

കൂടത്തായി കൊലപാതക പരമ്പരയിൽ മഞ്ചാടിയിൽ മാത്യു വധ ക്കേസിൽ പ്രധാനപ്രതിയായ ജോളിയെ പൊലീസ് കസ്റ്റഡി അവ സാനിച്ചതിനെ തുടർന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറ്റി

മാത്യുവിനെ കോടതി മൂന്ന് ദിവസത്തെ പൊലീസ് കസ്റ്റ ഡിയിൽ വിട്ടു